അന്താരാഷ്ട്ര വിമാന സർവ്വീസ് പൂനഃരാരംഭിക്കാൻ ശ്രമം

വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസമിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധന പുതുതായി റിപ്പോർട്ട് ചെയ്തത് ആയിര്ത്തിലധികം കേസുകൾ

കേരളത്തിൽ കോവിഡ് രോഗികളുടെ പ്രതിദിന കണക്കിൽ വർദ്ധന തുടരുന്നു

ലോകത്ത് കോവിഡ് മുക്തരായത് ഒന്നര കോടിയിലധികം പേർ അമേരിക്കയിലും ബ്രസീലിലും രോഗബാധിതർ പെരുകുന്നു

യാത്രാവിമാന സർവീസുകൾ പൂർവസ്ഥിതിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നീക്കം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നിയന്ത്രണങ്ങളോടെ യാത്രാവിമാനങ്ങൾ പറത്താനുള്ള അനുമതിക്കായാണ് ചർച്ചകൾ നടത്തുന്നത്

ഇതുവരെയുള്ള ഏറ്റവും കൂടിയ കണക്കാണിത് പരിശോധനകളുടെ എണ്ണം ദശ്ലക്ഷത്തിലേക്ക് കടക്കുന്നതായും ടെസ്റ്റ് ട്രാക്ക് ട്രീറ്റ് എന്ന ശാസ്ത്രീയ രീതിയിലേക്കുള്ള മുന്നേറ്റമാണിതെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഇന്നലെ ഭൂഷൺ വ്യക്തമാക്കി

സംസ്ഥാന സർക്കാരുകളും കേന്ദ്രത്തിനൊപ്പം പരിശോധനയിൽ മുന്നോട്ടുപോയത് നേരത്തെ വൈറസ് ബാധ കണ്ടെത്തുന്നതിനും പരിശോധന നിരക്ക് വർധിപ്പിക്കുന്നതിനും സഹായകരമായി

നിലവിൽ പതിനായിരത്തിലധികം പേരാണ് ഡൽഹിയിൽ ചികിത്സയിലുള്ളത്

കർണാടകയിൽ ഏഴായിരത്തിലധികം പേർ എൺപതിനായിരത്തിലധികം പേർക്കാണ് കർണാടകയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആറ് കോവിഡ് മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു

നാവികസേന മേധാവികൾ ഉൾപ്പെടെയുള്ളവർ സേനയുടെ പരിശീലന പരിപാടികൾ സൈനികവിന്യാസം തുടങ്ങിയവ പരിശോധിക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ ഇന്ത്യൻ സേനയുടെ മൂന്ന് വിഭാഗങ്ങളുടെയും സംയുക്ത പ്രവർത്തനം സേനയുടെ നവീകരണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയാകും

റെയിൽവേ ട്രാക്കിലൂടെ ദ്രുതഗതിയിൽ സഞ്ചരിച്ച് ട്രാക്ക് പരിശോധിക്കുന്നതിനും അത്യാവശ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായാണ് നൂതനരീതിയിൽ റെയിൽ ബൈസൈക്കിളിന് രൂപം നൽകിയത്

വാക്സിൻ വികസന ശ്രമങ്ങൾ ആഗോള സമൂഹത്തിന്റെ നിലനിൽപ്പിന് മാത്രമല്ല ലോക സമ്പദ്വ്യവസ്ഥ തകരാതിരിക്കാനും അത്യാവശ്യമാണെന്ന് ലോകാരോഗൃ സംഘടന തലവൻ ടെഡ്രോസ് അഥനോം അഭിപ്രായപ്പെട്ടു കോവിഡ് ആഘാതം കുറയ്ക്കാൻ വാക്സിൻ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

കോവിഡ് ഉൾപ്പെടെയുള്ള പകർച്ച വൃാധികളുടെ കാലമാണിതെന്നും അതിനാൽ ശരിയായ മുൻകരുതലുകൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

കേരളത്തിന്റെ വടക്കൻ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം

തിങ്കളാഴ്ച മുതൽ പട്നയിലെയും ഗാന്ധിഘട്ടിലെയും മിക്ക നദികളും അപകടനിലയ്ക്ക് മുകളിലാണെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് അറിയിച്ചു

കേസിലെ കക്ഷികളോട് മൂന്നു ദിവസത്തിനകം അവരുടെ ഭാഗം രേഖാമൂലം സമർപ്പിക്കാൻ ഡിവിഷൻ ബഞ്ച് ആവശ്യപ്പെട്ടു

കർഷകർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഐ ടി ബോംബെ ഐ ഐ ടി ദില്ലി എന്നിവ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്തെത്തി സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ ഒഡീഷയിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയാണ് മുന്നിൽ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ മഹാരാഷ്ട്രയിലെ പൂനെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ഒന്നാമതെത്തി

ഹർജി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മത്സരം യു എ ഇയിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു

മുന്നോട്ടുപോകവേയാണ് മത്സരം ഇന്ത്യയിൽത്തന്നെ നടത്തണമെന്ന ആവശ്യവുമായി അഭിഭാഷകൻ ഹർജി നൽകിയത്